പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു രാജ്യസഭാ പ്രതിപക്ഷനേതാവ് ഗുലാംനബി ആസാദ് ഇന്നും നാളെയും കേരളത്തിലെ വെള്ളപ്പൊക്ക മേഖല സന്ദർശിക്കും ും പുതിയ വാഹനങ്ങളുടെ ദീർഘകാല തേർഡ് പാർട്ടി ഇൻഷുറൻസ് പ്രീമിയം നാളെ നിലവിൽ വരും സതാംപ്ടൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് ബാറ്റിംഗ് തകർച്ച

പ്രളയ ദുരന്തത്തെ ഒറ്റക്കെട്ടായി നേരിടുകയെന്ന കേരളത്തിന്റെ വികാ രത്തെ സംസ്ഥാന നിയമസഭ ഏകകണ്ഠമായി പിന്തുണച്ചു പ്രത്യേക നിയ മസഭാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച പ്രമേ യത്തെ സഭ ഒറ്റക്കെട്ടായി അംഗീകരിക്കുകയായിരുന്നു സംസ്ഥാനത്തിന്റെ അതിജീവനത്തിന്റെ അടിസ്ഥാനം ഈ ഒത്തൊരുമയാണെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു പുനർനിർമ്മാണം സംബന്ധിച്ച് ചർച്ചയിൽ അഭിപ്രായങ്ങൾ ഉയർന്നുവരാത്തത് ന്യൂനതയായി കാണുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ വിശാലമായ വേദികളിൽ ഇതുസംബന്ധിച്ച ചർച്ചകൾ തുടരു മെന്നും കരട് രൂപരേഖ മന്ത്രിസഭ ചർച്ച ചെയ്യുമെന്നും മുഖ്യമന്ത്രി അറി യിച്ചു

ങ്ങളും വിവിധ മന്ത്രാലയങ്ങൾ അനുവദിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി പൊൻ രാധാകൃഷ്ണൻ ഡൽഹിയിൽ അറിയിച്ചു പ്രളയ നഷ്ടവുമായി ബന്ധപ്പെട്ട ക്ലെയിമുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ പൊതു സ്വകാര്യ മേഖലാ ഇൻഷു റൻസ് കമ്പനികൾക്ക് ധനമന്ത്രാലയം നിർദ്ദേശം നൽക്വിയിട്ടുണ്ട്

വെള്ളപ്പൊക്ക ദുരിതാശാസ നടപടികൾ കേന്ദ്രമന്ത്രി ജെ

നദ്ദ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു മന്ത്രി കെ

നദ്ദ സ്ഥിതിഗതികൾ വില യിരുത്തി ഒറ്റപ്പെട്ട പ്രളയമേഖലയിൽ പകർച്ചവ്യാധികൾ തടയുന്നതിന് രൂപീ കരിച്ച മൊബൈൽ മെഡിക്കൽ ക്ലിനിക് മന്ത്രി കെ

ദേശീയ ആരോഗൃ ദൌതൃത്തിന്റെ മേൽനോട്ടത്തിൽ ഓരോ ഡോക്ടർ നഴ്സ് ലാബ് ടെക്നീഷ്യൻ എന്നിവരടങ്ങിയ മൊബൈൽ സംഘ ത്തിന്റെ സേവനം എല്ലാ ജില്ലകളിലും ലഭ്യമാക്കുമെന്ന് മന്ത്രി അറിയിച്ചു രണ്ട് വാഹനങ്ങളാണ് മൊബൈൽ മെഡിക്കൽ ക്ലിനിക്കിന് ഉപയോഗിക്കു ന്നത്

കടാശ്വാസത്തിന് പരിഗണിക്കാൻ ഈ നടപടി ആവശ്യമാ ണെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി

സി സി പ്രസിഡന്റ് എം

ഹസ്സൻ തിരു വനന്തപുരത്ത് അറിയിച്ചതാണിത് ഇന്നു രാവിലെ പതിനൊന്നരയോടെ അദ്ദേഹം കൊച്ചിയിൽ എത്തും നാളെ രാവിലെ മലപ്പുറം ജില്ലയിലെ ഉരുൾപൊട്ടൽ പ്രദേശങ്ങളും അദ്ദേഹം സന്ദർശിക്കും തുടർന്ന് കോഴിക്കോട് ഡി സി സി സംഘടിപ്പിക്കുന്ന മത്സൃത്തൊഴിലാളികളുടെ സ്വീകരണ പരി പാടിയിലും ഗുലാംനബി ആസാദ് പങ്കെടുക്കും

തുകയുടെ ചെക്ക് നാവികസേ നാ മേധാവി അഡ്മിറൽ സുനിൽ ലംബ മുഖ്യമന്ത്രി പിണറായി വിജയന് തിരുവനന്തപുരത്ത് കൈമാറി കേരള കോൺഗ്രസ് എമ്മിന്റെ ആറ് എം എൽ എമാരും ഒരു എം പിയും ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി പ്രളയ മേഖലയിലെ ജനങ്ങൾക്ക് വിദേശത്തുനിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ലഭിക്കുന്ന അവശ്യസാധനങ്ങൾ സൂക്ഷിക്കാൻ തിരുവനന്തപുരത്ത് മൂന്ന് സംഭരണകേന്ദ്രങ്ങൾ തുടങ്ങി ഓരോ ജില്ലയി ലെയും ആവശ്യമനുസരിച്ച് സാധനങ്ങൾ ജില്ലാകലക്ടർമാർക്ക് കൈമാറു മെന്ന് അധികൃതർ അറിയിച്ചു

ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അംഗം കമൽ കിഷോർ ജോയിന്റ് സെക്രട്ടറി ഡോ

തിരുപ്പഴക് എന്നിവരാണ് വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ചത് അടിമാലി കുമ്പൻ പാറയിൽ അഞ്ച് പേരുടെ മരണത്തിനിടയാക്കിയ ഉരുൾപൊട്ടൽ നടന്ന സ്ഥലവും മൂന്നാറിലെ ഗവൺമെന്റ് കോളജിന്റെ ഭാഗത്തുണ്ടായ മണ്ണിടിച്ചിലും സംഘം വിശദമായി പരിശോധിച്ചു

പടികൾ തീരുമാനിക്കാൻ ഇന്നു രാവിലെ കലക്ട്രേറ്റ് ഹാളിൽ അവലോക നയോഗം ചേരും മന്ത്രിമാരായ ഇ ചന്ദ്രശേഖരൻ എ

ബാലൻ എന്നി വർ പങ്കെടുക്കും

പ്രളയ മേഖലയായ ചെങ്ങന്നൂരിൽ സംസ്ഥാന സഹകരണ ബാങ്ക് ഇന്ന് ശുചീകരണയജ്ഞം നടത്തും

പത്തനംതിട്ട ജില്ലയിൽ പ്രളയക്കെടുതിയിൽപ്പെട്ട വീടുകളിൽ കുടുംബശ്രീ പ്രവർത്തകരുടെ ശുചീകരണം ആരംഭിച്ചു

വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയ പാതയിലെ കുതിരാൻ ഇടതു തുരങ്കം അടച്ചു

പുതിയ കാറുകൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കും നാളെ മുതൽ ദീർഘകാല തേർഡ് പാർട്ടി ഇൻഷുറൻസ് പ്രീമിയം നിലവിൽ വരും കാറു കൾക്ക് മൂന്നുവർഷത്തെയും ഇരുചക്രവാഹനങ്ങൾക്ക് അഞ്ചുവർഷത്തെയും തേർഡ് പാർട്ടി ഇൻഷുറൻസ് പ്രീമിയം ഒന്നിച്ച് അടയ്ക്കണം

സൂപ്രീം കോടതി നിർദ്ദേശപ്ര കാരമാണ് വർദ്ധന

ബി വാജ്പേയ് എന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി

ഉന്നതമായ ജനാധിപത്യമൂല്യമായിരുന്നു അദ്ദേ ഹത്തിന്റേത്

എമ്മിന് ദേശീയ പാർട്ടി പദവി കിട്ടാൻ നിയമ ത്തിൽ ഇളവ് നൽകിയത് വാജ്പേയ് ആയിരുന്നുവെന്നും അദ്ദേഹം വെളി പ്പെടുത്തി വാജ്പേയിയുടെ ചിതാഭസ്മ യാത്രയ്ക്ക് എറണാകുളത്ത് നൽകിയ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ശ്രീധരൻപിളള ഇന്ത്യൻ ജനാധിപത്യത്തെ ഇരുളടഞ്ഞ കാലത്തുനിന്ന് വെളി ച്ചത്തിലേക്ക് നയിച്ച വൃക്തിയായിരുന്നു എ ബി വാജ്പേയ് എന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം

ചടങ്ങിൽ വാജ്പേയ് അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു രമേഷ് ് സാമൂഹ്യസുരക്ഷാ പെൻഷനുകൾ വാങ്ങിക്കൊണ്ടിരുന്ന അർഹ രായ നിരവധി പേർക്ക് പെൻഷൻ നിഷേധിച്ചെന്ന വാർത്ത അടിസ്ഥാനര ഹിതമാണെന്ന് മന്ത്രി എ

മൊയ്തീൻ അറിയിച്ചു

ഈ പട്ടിക സംബ ട ന്ധിച്ചും പരാതി ലഭിച്ചതിനാൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരെ പരിശോ ധനയ്ക്ക് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്

ജക്കാർത്ത ഏഷ്യൻ ഗെയിംസിൽ മലയാളി താരങ്ങളുടെ മി കവിൽ ഇന്ത്യക്ക് ഇന്നലെ രണ്ട് സ്വർണമടക്കം അഞ്ച് മെഡലുകൾ ലഭിച്ചു

ഏഷ്യൻ ഗെയിംസ് വനിതാ് ഹോക്കി ഫൈനലിൽ സ്വർണ പ്രതീക്ഷകളോടെ ഇന്ത്യ ഇന്ന് ജപ്പാനെയും സ്ക്വാഷിൽ വനിതാടീം മലേ ഷ്യയേയും നേരിടും

മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലറുടെ ചുമ തല പ്രൊ വൈസ് ചാൻസലർ ഡോക്ടർ സാബു തോമസിന് നൽകി

വിശാലകൊച്ചി വികസന അതോറിറ്റി ചെയർമാൻ സി

എം എറണാകുളം ജില്ലാ ജനറൽ സെക്ര ട്ടറിയായി ചുമതലയേറ്റതിനെ തുടർന്നാണിത്